ഡി എ ഗവൺമെന്റിന്റെ ജനക്ഷേമ നയങ്ങളുടെ തുടർച്ചയാണ് ഇടക്കാല ബജറ്റെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ്വികസനം ലക്ഷ്യം

ഉപരാഷ്ട്രപതി എം

മത്സര പരീക്ഷകളിലെ നെഗറ്റീവ് മാർക്ക് സംവിധാനം ഇല്ലാതാക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി

രാജ്യത്തെ മധ്യവർഗ്ഗ കുടുംബങ്ങളുടെ ജീവിത നിലവാരം സന്തുലിതമാക്കാൻ ഗവൺമെന്റ് അക്ഷീണം പരിശ്രമിക്കുകയാണ് നോട്ട് അസാധുവാക്കൽ നടപടി കള്ളപ്പണത്തിനെതിരായുള്ള ഇടപെടൽ എന്നിവയിലൂടെ രാജൃത്തെ നികുതി വരുമാനം വർദ്ധിച്ചു

കൂടുതൽ വിവരങ്ങളുമായി അർച്ചന

നികുതിദായകരായ സമൂഹത്തിന് വലിയ ആശ്വാസമാവുന്ന ബജറ്റാണ് കേന്ദ്രം അവതരിപ്പിച്ചതെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു

കർഷകർക്കും മധ്യവർഗ്ഗത്തിനും പട്ടികജാതി പട്ടികവർഗ്ഗവിഭാഗത്തിനും ഊന്നൽ നൽകുന്നതാണ് ബജറ്റെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാനും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനും സഹായകരമായതാണ് ബജറ്റെന്ന് വാർത്താവിതരണപ്രക്ഷേപണ മന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡും അഭിപ്രായപ്പെട്ടു

ആദായ നികുതിയിൽ ഇളവ് നൽകിയത് കോർപ്പറേറ്റ് മേഖലയിലുള്ളവർക്ക് സഹായകരമാകുമെന്ന് ഫിക്കി പ്രസിഡന്റ് സന്ദീപ് സോമനി അഭിപ്രായപ്പെട്ടു കർഷകർക്കും ഗവൺമെന്റ് ജീവനക്കാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും പരിഗണന നൽകുന്നതാണ് ബ്ജ്റ്റെന്ന് അസോചം ജനറൽ സെക്രട്ടറി ഉദയ് വർമ്മ പറഞ്ഞു ബജറ്റ് ഗുണപരമായതും മികച്ച സാമ്പത്തിക വൃവസ്ഥ വിഭാവനം ചെയ്യുന്നതുമാണെന്ന് സി ഐ

കാർഷിക രംഗത്തിന് വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച ബജറ്റിനെ നബാർഡ് സ്വാഗതം ചെയ്തു

ബജറ്റിൽ അഭിനന്ദനീയമായ സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും നികുതിദായകർക്കും ആശ്വാസം നൽകുന്ന ബജറ്റാണിതെന്ന് ഒഡിഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് പറഞ്ഞു

റെയിൽവേ ്ലൈനുകൾ സജ്ജമാകുന്നതോടെ രാജ്യത്തിന്റെ ഉത്തരമേഖലയിൽ നിന്നും വ്ടക്കുകിഴക്കൻ മേഖലയിലേക്കുള്ള കൽക്കരി ഉൾപ്പെടെയുള്ള ചരക്ക് കടത്ത് കൂടുതൽ സുഗമമാകും

ആർ ഒ

ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കാനാണ് സാധ്യത

മഞ്ഞുവീഴ്ച മൂലം ശ്രീന്ഗർ ജമ്മു ദേശീയപാത രണ്ടു ദിവസമായി അടഞ്ഞുകിടക്കുകയാണ് ഇതുവഴിയുള്ള ഗതാഗതം പരമാവധി വേഗം പുനഃസ്ഥാപിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു താഴ്വരയിലെ പിർപഞ്ചാൾ മേഖലയിൽ ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

ഇന്ന് കോട്ടയത്ത് അഖില കേരള ബാലജനസഖ്യത്തിന്റെ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു

കൊല്ലത്തെത്തുന്ന ഉപരാഷ്ട്രപതിക്ക് വൻവരവേൽപ്പാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് ഉച്ചകഴിഞ്ഞ് സുവർണ ജൂബിലി ഉദ്ഘാടനവും സുവർണ ജൂബിലി ആഘോഷ ശിലാഫലക അനാച്ഛാദനവും പ്രത്യേക തപാൽ സ്റ്റാംപിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും

വിദ്യാഭ്യാസത്തിൽ മാതൃഭാഷയ്ക്ക് പ്രാമുഖ്യം നൽകുണമെന്ന് ശ്രീ

ഉപരാഷ്ട്രപതിയൂടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കോട്ടയം കൊല്ലം നഗരങ്ങളിലും പരീസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

പിമാരെയാണ് വിവിധ സ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയത്

ഐമാർക്ക് ഡി

എസ്

മുംബൈയിൽ ആഗസ്റ്റ് നാലിന് നടക്കുന്ന കടപ്പത്രലേലം മുഖേനയാണ് പണം സമാഹരിക്കുന്നത്

ടി

വരുന്ന പൊതുതെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൊൽക്കത്തയിൽ വിവിധ രാഷ്ട്രീയപാർട്ടികളുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ ദ്വിദിന ചർച്ചകൾക്കു ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലേറെയായി ഇലക്ട്രോണിക് വോട്ടിങ് മെഷീനുകൾ രാജ്യത്ത് ഉപയോഗിച്ചു വരികയാണെന്ന് ശ്രീ

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുദൃഡമായ നയമാണ് ഇലക്ട്രോണിക് വോട്ടിങ് മെഷീനുകൾ അത് അങ്ങനെ തന്നെ തുടരുമെന്ന് കരുതുന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു

മൂല്യനിർണയത്തിൽ നെഗറ്റീവ് മാർക്ക് നൽകുന്നതുവഴി നിരവധി വിദ്യാർത്ഥികൾക്ക് ഐ ഐ ടി പോലുള്ള മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പ്രവേശനം ലഭ്യമാകുന്നില്ല

നിയമപരമായി നെഗറ്റീവ് മാർക്ക് നൽകുന്നത് തെറ്റാണെന്നും കോടതി പറഞ്ഞു

പുണ്യസ്നാനത്തോട് അനുബന്ധിച്ച് ജില്ലയിലെ ഗ്ലെൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ സ്ഥാപനങ്ങൾക്കും മൂന്ന് ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മേഖലയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി

ശീതയുദ്ധ സന്ധിയിലെ വ്യവസ്ഥ റഷ്യ ലംഘിച്ചതിനാലാണ് കരാറിൽ നിന്നും പിൻമാറുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു

ഡീസൽ വിലയിൽ മാറ്റമില്ല

സ്വർണവിലയിൽ മാറ്റമില്ല

രണ്ടാം മത്സരത്തിലും ഇന്ത്യൻ താരം പ്രജ്നേഷ് ഗന്നേശ്വരൻ ഇറ്റലിയുടെ മാറ്റിയോയ്ക്ക് മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ടുതന്നെ ഇന്നത്തെ ഡബിൾസ് പോരാട്ടം ഇന്ത്യക്ക് നിർണായകമാണ്